പുതിയ നയം ഫലപ്രദമായി നടപ്പാക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി

സംസ്ഥാന സ്റ്റാർട്ട് അപ്പ് റാങ്കിങ്ങിൽ കേരളവും കർണാടകയും മുന്നിൽ

ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള കോൺക്ലേവിനെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ ഇന്ത്യയുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിലേക്ക് നയിക്കുന്നതാകും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമ്മോദി പ്റഞ്ഞു

വിവിധ മേഖ്ലക്ളിലുള്ള വിദഗ്ധരുടെ കഴിഞ്ഞ നാലഞ്ചു വർഷമായുള്ള കഠിന പ്രിശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചത്

പുതിയ നയം ഫലപ്രദമായി നടപ്പാക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നൈപുണ്യ പരിശീലനത്തിന് വിദ്യാർഥികളെ പ്രാപ്തരാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അഭിരുചികൾ മനസ്സിലാക്കി പഠിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം അവസരമൊരുക്കുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

പ്രവർത്തനം വിലയിരുത്തൽ സമഗ്രമായ വികസനത്തിനുള്ള പരിജ്ഞാനം വിശകലനം ചെയ്യൽ എന്നിവയായിരിക്കും പരഖ് എന്ന ഈ കേന്ദ്രത്തിന്റെ ചുമതലകൾ

അതിർത്തി സംബ്രന്ധിച്ച അഞ്ച് വിഷയങ്ങളിൽ ഇരുരാജൃങ്ങളും പരസ്പൂര് ധാരണയോടെ പ്രവർത്തിക്കുമെന്ന് മോസ്കോയിൽ നടക്കുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ വിദേശകാരൃമന്ത്രി എസ്

അതിർത്തിയിൽ സമാധാനവും ശാന്തതും സ്ഥിരമായി പാലിക്കാൻ ഇരുനേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി

ഗൃഹപ്രവേശ ചടങ്ങിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോവിഡ് പ്രതിസന്ധി പങ്കെടുക്കും

അതിനൂതന സംരംഭങ്ങളുടെ ആശയങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിലൂടെയാണ് ഈ സംസ്ഥാനങ്ങൾ മുന്നില്ലെത്തിയത്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

തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി അൽപ്പം നീട്ടിവയ്ക്കാനും എന്നാൽ അനന്തമായി നീട്ടേണ്ടതില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടും

അന്തർസംസ്ഥാന ഓക്സിജൻ വിതരണത്തിന് തടസ്സം സൃഷ്ടിക്കാനും ഉൽപ്പാദക സംസ്ഥാനത്തിലെ ആശുപത്രികളിൽ മാത്രം ഓക്സിജൻ വിതരണം ചെയ്യാനും ചില സംസ്ഥാനങ്ങൾ ഉൽപ്പാദകരോടും വിതരണക്കാരോടും ആവശ്യപ്പെടുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രാലയ സെക്രട്ടറി സംസ്ഥാന കേന്ദ്രഭരണപ്രദേശങ്ങൾക്ക് കത്തയച്ചത്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

കേരളത്തിൽ നിന്ന് വിദ്യാർഥികൾ ഇല്ലെങ്കൂിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻ

ഐ വിദ്യാർഥ്ചിക്ക്ള് പ്രവേശിപ്പിക്കാമെന്നും സുപ്രീം കോടതിയുടെ ഇടക്കാലും ഉത്തരവ് ഈ വർഷത്തേയ്ക്ക് മാത്രമാണ് ഉത്തരവ്

ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ഫൈനലിൽ നവോമി ഒസാക്ക ബെലാറസിന്റെ വിക്ടോറിയ അസരങ്കയെ നേരിടും